ആഫ്രിക്കൻ രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്ന വിദേശനയമാണ് ഇന്ത്യയുടേതെന്ന് പ്രധാനമന്ത്രി

വിവിധ വിദ്യാഭ്യാസ കാർഷിക സ്ഥാപനങ്ങളിലെ സന്ദർശനത്തിനു ശേഷം കർഷകർ വിദ്യാർത്ഥികൾ സ്വയം സഹായ സംഘടനകൾ എന്നിവരുമായും ശ്രീ

ജഗദൽപൂറിലെ മെഡിക്കൽ കോളേജ് ആശുപത്രി രാഷ്ട്രപതി നാളെ രാഷ്ട്രത്തിന് സമർപ്പിക്കും

ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉഗാണ്ടൻ പാർലമെന്റിൽ പ്രസംഗിക്കുന്നത് ഉഗാണ്ടയിലെ കംപാലയിൽ ഇന്നലെ രാത്രി ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു ആഗോള നിർമ്മാണ പുതു സംരംഭകത്വ കേന്ദ്രമായി വളർന്നുവരുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കാറുകളും സ്മാർട്ട് ഫോണുകളും മറ്റും ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഇപ്പോൾ അവ കയറ്റി അയയ്ക്കുകയാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി പ്രകൃതി വിഭവ സമ്പന്നമായ ഉഗാണ്ട ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്ന വിദേശനയമാണ് ഇന്തൃയുടേതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

പ്രഥമ ലക്നൌ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ഉദ്ഘാടനം നടക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു

ഇതിനു പുറമെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന സ്മാർട്ട്സിറ്റി കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തിലും ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കും

വൻകിട കോർപ്പറേറ്റുകളായ ബിർള റിലയൻസ് അദാനി ഉൾപ്പെടെ എട്ട് പൃവസായ തലവൻമാർക്ക് കോൺഫറൻസിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്

കഴിഞ്ഞ ഫെബ്രുവരിയിൽ യു പിയിൽ നടന്ന നിക്ഷേപ സംഗമത്തിൽ ധാരണയായ പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുക

നോട്ടീസ് നൽകിയതിലൂടെ കോൺഗ്ഗസിലെ ആശയക്കുഴപ്പങ്ങളും കാപട്യവും തുറന്നുകാട്ടപ്പെട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു

പോലീസിന് ലഭിച്ച രഹസൃ വിവരത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ന്യൂഡൽഹിയിലെ മുനീർക്കയിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയതെന്ന് ഡൽഹി വനിതാ കമ്മീഷൻ അധൃക്ഷ സ്വാതി മാലിവാൾ പറഞ്ഞു ഗൾഫിൽ തൊഴിൽ വാഗ്ദാനം ചെയ്ത് ഡൽഹിയിൽ എത്തിച്ച ഇവരെ ചെറിയ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു

താനെയിലും നവി മുംബൈയിലുമാണ് രണ്ട് ബസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് മുംബൈയ്ക്ക് പുറമെ താനെ പുനെ റെയ്ഗഡ് എന്നിവിടങ്ങളിലും ബന്ദ് ആചരിക്കുകയാണ് നാല് നഗരങ്ങളിലേയും പ്രധാന റോഡുകൾ പ്രതിഷേധക്കാർ അടച്ചതിനാൽ ഗതാഗതം മുടങ്ങി

വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ ഇവരെ പിതോര ഘട്ടിൽ എത്തിച്ചു

ലാൽചോക് പ്രദേശത്തെ കോട്ട്വാലി ഗലിയിൽ ഇന്ന് രാവിലെ സുരക്ഷാസേന നടത്തിയ തെരച്ചിലിനെ തുടർന്നാണ് വെടിവെയ്പ്പ് ആരംഭിച്ചത് പ്രദേശത്ത് ഭീകരരുടെ സാന്നിധൃമുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരമാണ് സേന തെരച്ചിൽ നടത്തിയതെന്ന് സംസ്ഥാന ഡിജിപി വാർത്താലേഖകരെ അറിയിച്ചു

ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ടായിരുന്നു ധർണ

ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബഞ്ചാണ് കേസ് പരിഗണിച്ചിരുന്നത് പഞ്ചാബ് ഗ്വൺമെന്റാണ് കേസിലെ എതിർകക്ഷി

ഭീകരാക്രമണഭീഷണി കണക്കിലെടുത്ത് നാല് ലക്ഷത്തോളം പോലീസും മൂന്നര ലക്ഷത്തോളം സൈനികരും രാജ്യത്തുടനീളം കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു

ഇംമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫ് പാർട്ടിയും നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്തീം ലീഗ് നവാസും തമ്മിലാണ് പ്രധാന മത്സരം നവാസിന്റെ സഹോദരൻ ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലാണ് പി എം എൽ എൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്

യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ സ്മരണാർത്ഥം അമേരിക്കയിലെ കൻസാസ് നഗരത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

എന്നാൽ ഒബാമ ഭരണകൂടം ഏർപ്പെട്ടിരുന്ന കരാറിൽ നിന്ന് വൃത്യസ്തമായ കരാറിൽ ഒപ്പിടാൻ യുഎസ് തയ്യാറാണെന്നും അദ്ദേഹം വൃക്തമാക്കി

ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് യുഎസ് ഏജൻസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

ഊഹാപോഹങ്ങൾ പരക്കുന്നതിന്റെ തുടർന്ന് രാജൃത്ത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ വർദ്ധിച്ചുവ്രികയ്ാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജനാധിപത്യ ലോകത്ത് മാധ്യമ സ്വാതന്ത്ര്യം പരമ പ്രധാനമാണെന്നും എന്നാൽ മാധ്യമങ്ങൾക്ക് സിയ്ം നിയന്ത്രണത്തിനുള്ള മാർഗ നിർദ്ദേശം ഉണ്ടാകണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്റർനാഷണൽ ലോ കമ്മീഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

രണ്ടാം പ്രതി എസ് വി ശ്രീകുമാറിനുമാണ് വധശിക്ഷ വിധിച്ചത്

സാബു എ

ഹരികുമാർ എന്നിവർക്ക് മൂന്ന് വർഷം വീതം തടവുശിക്ഷയും വിധിച്ചു തിരുവനന്തപുരം സിബിഐ പ്രത്യേക കോടതി ജഡ്ജി ജെ

അഞ്ചു പേരും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു